സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സാമൂഹിക അകലം പാലിച്ച് രാത്രികാല കർഫ്യൂ പിൻവലിക്കും സ്കൂളുകളും കോളജുകളും അടുത്തമാസവും തുറക്കില്ല

ത വിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫാ സംഗമം ഇന്ന് ബലിപെരുന്നാൾ നാളെ

മലപ്പുറം മുതൽ കാസർകോട് വരെ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വാർത്തകൾ വിശദമായി കേന്ദ്ര മന്ത്രിസഭ ഇന്നലെ അംഗീകരിച്ച പരിഷ്കരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയെ ഊർജസ്വലമായ വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ ഏറെക്കാലമായി കാത്തിരുന്ന പരിഷ്കാരമാണ് ഇതെന്നും ദശലക്ഷക്കണക്കിന് പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു എല്ലാവർക്കും സ്കൂൾ പ്രവേശനം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ നയ പരിഷ്കരണം വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

രാജ്യത്തെ സംരക്ഷിക്കുക എന്നതിനേക്കൾ വലിയൊരു നൻമയും പ്രതിജ്ഞയും യജ്ഞവും വേറെയില്ലെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു രുഭ കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം ഗൌരവമായ വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി സി

ഇന്ത്യയുടെ ഫെഡറൽ ഘടനയുടെ സാധ്യത പ്രയോജനപ്പെടുത്താൻ സഹായകമായ നയങ്ങൾ നിലനിന്നതിനാലാണ് കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ അധികാര കേന്ദ്രീകരണം സംസ്ഥാനങ്ങളുടെ ഇടപെടാനുളള അധികാരവും അവകാശവും പരിമിതപ്പെടുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുമെന്നും ഇത് ഫെഡറലിസത്തിന്റെ ഭരണഘടന മുന്നോട്ടുവയ്ക്കുന്ന നിരാസമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു രുദ അൺലോക്ക് മൂന്ന് മാർഗനിർദേശങ്ങൾ കേന്ദ്രആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി മറ്റന്നാൾ നിലവിൽ വരുന്ന അൺലോക്ക് മൂന്ന് കാലയളവിൽ കണ്ടെയിൻമെന്റ് സോണിൽ ഒഴികെ ഇളവുകൾ അനുവദിക്കും

യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ജിംനേഷ്യങ്ങളും അടുത്തമാസം അഞ്ചു മുതൽ തുറന്നു പ്രവർത്തിക്കാം

മെട്രോ റെയിൽ സിനിമാശാലകൾ സ്വിമ്മിങ് പൂളുകൾ പാർക്കുകൾ തിയറ്ററുകൾ ബാറുകൾ എന്നിവ കണ്ടെയിൻമെന്റ് സോണിന് പുറത്ത് തുറക്കാൻ അനുവദിക്കും സാമൂഹിക രാഷ്ട്രീയ കായിക വിനോദ മത സാമുദായിക സാംസ്കാരിക പരിപാടികൾക്ക് നിയന്ത്രണങ്ങൾ തുടരും

ദേദ സംസ്ഥാനത്ത് കൊവിഡ് രോഗികളെ വീടുകളിൽ ചികിത്സിക്കാൻ അനുമതി നൽകി പുതിയ മാനദണ്ഡം ആരോഗ്യവകുപ്പ് പുറത്തിറക്കി

ഇത്തരക്കാർക്ക് നിരീക്ഷണത്തിൽ കഴിയുന്നതിന്റെ പത്താം ദിവസം കൊവിഡ് രോഗ ബാധ പരിശോധിക്കാൻ ആന്റിജൻ ടെസ്റ്റ് നടത്തും

നെഗറ്റീവാണെങ്കിൽ അടുത്ത ഏഴ് ദിവസം കൂടി നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരും

രുര കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി കോവിഡ് ആശുപത്രിയായി മാറ്റുന്ന സാഹചര്യത്തിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന അഞ്ച് ഒ

കൾ കാരപ്പറമ്പിലെ ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രത്യേക ബ്ലോക്കിലേക്ക് മാറ്റുമെന്ന് മന്ത്രിമാരായ ടി

കോഴിക്കോട് ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ആരോഗ്യ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിനു ശേഷമാണ് മന്ത്രിമാർ ഇക്കാര്യം അറിയിച്ചത്

രുമ കൊല്ലം ജില്ലയിൽ കണ്ടയിൻമെന്റ് സോണുകളിൽ ഇളവ് അനുവദിച്ച ഇടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കശുവണ്ടി ഫാക്ടറികൾ തുറക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു ജില്ലയിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തിയ അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ദരദ വയനാട്ടിലെ വാളാട് സമ്പർക്കം വഴി കൊവിഡ് വ്യാപനം ആശങ്കജനകമായി തുടരുന്നു

വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ

ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മന്ത്രി എ കെ ബാലന്റെ അധ്യക്ഷതയിൽ ഇന്ന് എം

ദേദ കോവിഡ് രോഗമുക്തി നേടിയവർ മറ്റ് അസുഖങ്ങൾക്ക് ചികിത്സ തേടി സമീപിക്കുമ്പോൾ ചില സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നിഷേധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്നും കൊല്ലം ജില്ലാ കലക്ടർ ബി

രേര ട്രിപ്പിൾ ലോക്ക് ഡൌൺ പ്രഖ്യാപിച്ച ഇരിങ്ങാലക്കുട നഗരസഭയിലും മുരിയാട് ഗ്രാമപഞ്ചായത്തിലും ബാങ്കുകൾക്ക് ഇന്ന്മാത്രം രാവിലെ പത്ത് മുതൽ വൈകീട്ട് അഞ്ച് വരെ പരിമിതമായ ജീവനക്കാരുമായി പ്രവർത്തിക്കാമെന്ന് തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു

ഇന്നലെ തമ്പുകളുടെ നഗരമായ മിനായിൽ രാപ്പാർത്ത ഹാജിമാർ ഇന്ന് പ്രഭാത നമസ്കാരത്തിന് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ ബസുകളിൽ അറഫയിലേക്ക് നീങ്ങും സൂര്യാസ്തമയം വരെ അവർ പ്രാർഥനാ നിരതരായി അറഫയിൽ കഴിഞ്ഞുകുടും

ഇവിടെ രാപ്പാർത്ത ശേഷം വീണ്ടും മിനായിൽ തിരിച്ചെത്തും പിന്നീട് ജംറകളിലെ ആദ്യ ദിനത്തെ കല്ലേറ് കർമം പൂർത്തീകരിക്കും കൊവിഡ് പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടെയാണ് ഇത്തവണ ഹജ്ജ് കർമങ്ങൾ നടക്കുന്നത്

ഇബ്റാംഹീം നബിയുടെ ത്യാഗസ്മരണകൾ അയവിറക്കി സംസ്ഥാനത്തും വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും

മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ അതി തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

മലയോര മേഖലയിലേക്ക് രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രുമ കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു വലിയന്നൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് വീണ് ഗൃഹനാഥൻ മരിച്ചു

ദർദ എറണാകുളം ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി

ജി റോഡ് ബാനർജി റോഡ് ഗാന്ധി നഗർ പനമ്പിള്ളി നഗർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായി കമ്മട്ടിപ്പാടം പി വി ടി കോളനി പശ്ചിമ കൊച്ചി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി

ഇടപ്പള്ളിയിൽ വട്ടേക്കുന്നത്ത് റോഡ് ഇടിഞ്ഞ് സമീപത്തെ വീടിനുമുകളിൽ വീണു

നിരവധി കടകളിലും സ്ഥാപനങ്ങലിലും വെള്ളം കയറി

രേര സംസ്ഥാനത്തെ ചില ജില്ലകളിൽ കാലവർഷം ശക്തിപ്രാപിക്കുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏത് അടിയന്തിര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കാൻ പോലീസുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

മേഴ്സിക്കുട്ടി അമ്മ അറിയിച്ചു